മഹാരാഷ്ട്രയിലും ഹരിയാന്റിയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉൌർജ്ജിതം

വടക്കൻ സിറിയയിൽ തുർക്കി നടത്തുന്ന ആക്രമണങ്ങളെ അറബ് ലീഗ് അപലപിച്ചു തുർക്കിയിലേക്കുള്ള ആയുധ കയറ്റുമതി ഫ്രാൻസും ജർമ്മനിയും നിർത്തിവച്ചു

ലോക വനിതാ ബോക്സിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ മഞ്ജുറാണി ഇന്ന് റഷ്യയുടെ ഏകത്തെറിന പാൽട്സവയെ

അധ്യക്ഷതയിൽ യോഗം ചേർന്നത്

ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള ഉച്ചകോടിക്കുശേഷം മാമല്ലപുരത്തുനിന്ന് മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ തിരക്കേറിയ ദിവസമായിരുന്നൂു ഇന്നലെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പരിപാടിയെക്കുറിച്ച് പ്പ്ർച്ച് ചെയ്യാനുള്ള യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നതായി അദ്ദേഹത്തിന്റെ ഓഫീസ് ട്വീറ്റ് ചെയ്തു ഇന്ത്യയ്ക്ട്ട് വൈവിധ്യവും ദേശീയ ഐക്യവും ഉയർത്തിക്കാട്ടുന്ന പരിപാടി ശ്രീ മോദി പ്രത്യേക താൽപ്പര്യമെടുത്ത് ആവിഷ്ക്കരിച്ചതാണ് സാംസ്കാരികമായ അറിവുകൾ പങ്കുവയ്ക്കാനാണ് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ പ്രാദേശിക സാംസ്കാരിക വൈവിധ്യം ആഘോഷിക്കാൻ ഇത് വഴിയൊരുക്കും

വിവധ സംസ്ഥാനങ്ങിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ഐക്യം ഊട്ടിയുറപ്പിക്കാനും പരസ്പരം മനസിലാക്കാനും ഉപകരിക്കും ഓരോ വർഷവും എല്ലാ സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനത്തിലെ ജനതയുമായി ആശയ വിനിമയത്തിൽ ഏർപ്പെടും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭണ്ഡാര ജില്ലയിലെ ജൽഗാവിലും സകോലിയിലുമാണ് പ്രധാനമന്ത്രി ഇന്ന് ബി ജെ

മുംബെയിലെ ധാരാവിയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽഗാന്ധി പ്രസംഗിക്കും ആഭ്യന്തരമന്ത്രി അമിതാഷായും ഇന്ന് നിരവധി റാലികളിൽ പങ്കെടുക്കും

ഉത്തരപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഹരിയാന മുഖ്യമന്ത്രി മ്യൂനോഹർ ലാലും ഇന്നലെ പ്രചാരണ റാലികളിൽ പങ്കെടുത്തു

സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുള്ള ന്യായവില കാർഷികോൽപ്പനങ്ങൾക്ക് ഉറപ്പാക്കുമെന്നും കൃഷി ആവശ്യങ്ങൾക്ക് സൌജന്യമായി വൈദ്യുതി നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സഹകരണം ശക്തമാക്കാൻ പ്രമുഖ നേതാക്കളുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇരുവരും എത്തുന്നതെന്ന് വിദേശകാരൃ മന്ത്രാലയം അറിയിച്ചു ഡൽഹിയും മുംബൈയും സന്ദർശിക്കുന്ന രാജ ദമ്പതികൾ കേരളത്തിലുമെത്തും

ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ശക്തമായി ഇടപെട്ട് വിജയം കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു എല്ലാവർക്കുമൊപ്പം എല്ലാവരുടേയും വികസനം എന്നതാണ് ലക്ഷ്യം പോലീസീന്റെ അതിക്രമവും കസ്റ്റഡിമരണവും കർശനമായി ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഇരുരാജ്യങ്ങളും തമ്മിൽ വ്യാപാര നിക്ഷേപങ്ങൾ വർധിപ്പിക്കാൻ പുതിയ സംവിധാനത്തിന് ധാരണയായി

നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയും ചൈനയും പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് ഇരുരാജ്യങ്ങളും കൂട്ടിക്കാഴ്ചയിൽ ആവർത്തിച്ചു

അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പശ്ചാത്തലത്തിൽ ്ഇരുരാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തി ആഗ്ഗോളപങ്കാളിത്തം ഉറപ്പാക്കും ഉഭയകക്ഷി ചർച്ചകളിൽ വിദേശകാർ്യമന്ത്രി ഡോ

ചൈനയിലെ ഉച്ചകോടി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പുതിയ യുഗത്തിന് വഴിതുറന്നെന്ന് ശ്രീ

ഇരു നേതാക്കളും ദേശീയ കാഴ്ചപ്പാടുകളും ഭരണ നിർവഹണത്തിലെ മുൻഗണനകളും ചർച്ച ചെയ്തതോടൊപ്പം വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും ആരാഞ്ഞു

ഇരുരാജ്യങ്ങളും തമ്മിൽ സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്തത്തിനായി കൂടിയാലോചന കൾ നടത്താനും ധാരണയായി

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ഉന്നതതല സംവിധാനത്തിനും ധാരണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും തമ്മിലുള്ള അനൌദ്യോഗിക ഉച്ചകോടിയുടെ സമാപനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തമിഴ്നാട്ടിൽ മാമല്ലപുരത്ത് നടന്ന രണ്ടാം അനൌദ്യോഗിക ഉച്ചകോടി വിജയകരമായാണ് പര്യവസാനിച്ചത്

പ്രധാന നഗരങ്ങളിലൊന്നായ റാസ് അൽ അയ്നിന്റെ നിയന്ത്രണം ഏറ്റെടുത്തെന്ന തുർക്കിയുടെ അവകാശവാദം സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് നിരാകരിച്ചു ആക്രമണം നടത്താൻ തുർക്കിക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് യു

ഫ്രാൻസും ജർമനിയും തുർക്കിയിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവച്ചു

സ്വീഡന്റെ ഫെലിക്സ് ബുറെസ്റ്റെദിനെയാണ് സെമിയിൽ പരാജയപ്പെടുത്തിയത്

ഗ്രാം വിഭാഗത്തിൽ ആദ്യമായാണ് ലോകചാമ്പ്യൻഷ്ടിപ്പിൽ ്മത്സരിക്കുന്നത്

ഒരു സ്ത്രീയടക്കം എട്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ വിദേശ ഭീകരർ ആക്രമണം നടത്തുന്നത് തടയാനാണ് കഴിഞ്ഞ ആഗസ്റ്റ് നാല് മുതൽ മൊബൈൽ നെറ്റ് വർക്ക് വിലക്കിയത്

പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കവെയാണ് നക്സലുകൾ ഇവരെ തട്ടിക്കൊണ്ടുപോയത്

സ്ഥിതി നിയന്ത്രണവിധേയമാക്കാൻ പങ്കജ്കുമാർ നടപടി എടുത്തില്ലെന്ന് ആഭ്യന്തരവകുപ്പ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് വകുപ്പുതല നടപടി സ്വീകരിക്കുന്നതെന്ന് ഉത്തരവിൽ പറഞ്ഞു

പല പ്രചാരണ ജാഥകളും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും അനുവദനീയമായതിലും അധികം ശബ്ദത്തിൽ കാതടപ്പിക്കുന്ന രീതിയിലാണ് പല വാഹനങ്ങളിലും പ്രചാരണം നടത്തുന്നതെന്നും പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചതിനെത്തുടർന്നാണ് നിർദേശം